സ്വകാര്യ ബസ് സർവ്വീസുകളും ഇന്നുമുതൽ തടസ്സപ്പെട്ടേക്കും ത സംസ്ഥാനത്ത് കോവിഡ് സമ്പർക്ക രോഗബാധിതരുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുന്നു

ത നാലാമത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തണിൽ പങ്കെടുക്കുന്നവരെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും വാർത്തകൾ വിശദമായി അൺലോക്ക് മൂന്നാം ഘട്ടത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് പുറത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്ന മാർഗ്ഗ നിർദ്ദേശങ്ങൾ ഇന്ന് നിലവിൽ വരും സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് പുതിയ മാർഗ്ഗ നിർദ്ദേശങ്ങൾ ആരോഗ്യ മന്ത്രാലയം ബുധനാഴ്ച പുറപ്പെടുവിച്ചത്

നിയന്ത്രണം സംസ്ഥാനത്തിനകത്തെ യാത്രകൾക്കും അന്തർ സംസ്ഥാന യാത്രകൾക്കും നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല ജിംനേഷ്യങ്ങളും യോഗ കേന്ദ്രങ്ങളും ഈ മാസം അഞ്ചുമുതൽ തുറക്കാം സാമൂഹിക അകലവും മറ്റ് ആരോഗ്യ പ്രോട്ടോകോളുകളും പാലിച്ച് സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്താം

മെട്രോ റെയിൽ സിനിമാ ശാലകൾ നീന്തൽ കുളങ്ങൾ വിനോദ പാർക്കുകൾ ബാറുകൾ എന്നിവയും പ്രവർത്തിക്കില്ല

സാമൂഹ്യ രാഷ്ട്രീയ കായിക പരിമിതമായി പരിപാടികളും മത സാംസ്ക്കാരിക പരിപാടികളും ഉൾപ്പെടെ വൻതോതിൽ ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾക്കും അനുമതിയില്ല

സമ്പർക്ക രോഗികളുടെയും ഹോട്ട്സ്പോട്ടുകളുടെയും എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചാണ് തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു ജില്ലാ ആസ്ഥാനങ്ങൾ പലതും കണ്ടെയ്ൻമെന്റ് സോണുകളിലാണ് ബസ്സുകൾ ഓടിക്കുമ്പോൾ കണ്ടെയൻമെന്റ് സോണുകളിൽ നിർത്താനോ ആളുകളെ കയറ്റാനോ ഇറക്കാനോ പാടില്ല ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്ന സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ട ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതാണ് ഉചിതമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ദേദ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സർവ്വീസുകൾ ഇന്നുമുതൽ തടസ്സപ്പെട്ടേക്കും സർവ്വീസുകൾ നിർത്തിവെയ്ക്കുമെന്ന് ബസ്സുടമകളുടെ സംയുക്ത സമിതി അറിയിച്ചു എന്നാൽ ഇപ്പോൾ ഓടുന്ന ബസ്സുകൾ സർവ്വീസ് തുടരുമെന്ന് ഏതാനും സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്

കെ ശശീന്ദ്രൻ അറിയിച്ചിരുന്നു

ഇവരുടെ സ്രവ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി

നാലുപേരുടെ ഉറവിടം വ്യക്തമല്ല

ഏറ്റവും കൂടുതൽ രോഗം സ്ഥിരീകരിച്ചത് പായിപ്പാട് പഞ്ചായത്തിലാണ്

ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഒരു കോടി എഴുപത്തി ഏഴര ലക്ഷത്തോട് അടുക്കുന്നു

ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരളാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഡോക്ടർമാരും പാരാ മെഡിക്കൽ ജീവനക്കാരും എത്തുന്നത് ഇവർക്ക് മറ്റന്നാൾ മുതൽ പരിശീലനം നൽകും

ഇതിന് പുറമെ ഏതാനും ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളും മുനിസിപ്പാലിറ്റിയിലുണ്ട്

രുമ വയനാട് നല്ലൂർനാട് ഫസ്റ്റ്ലൈൻ ചികിത്സാ കേന്ദ്രത്തിൽ കഴിയുന്ന അഞ്ച് പേർക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിന് പൊലീസ് കേസെടുത്തു ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നും ഇവർക്കെതിരെ ആരോപണമുണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ അവഹേളിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട യുവാവിനെതിരെ തലപ്പുഴ പൊലീസും കേസെടുത്തു മാനന്തവാടി കൂടംകുന്ന് അബ്ദുൾ റഷീദിനെതിരെയാണ് കേസ് രുഭ പ്രവാസി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന വന്ദേഭാരത് ദൌത്യത്തിന്റെ അഞ്ചാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും

പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി സംവദിക്കും

തിങ്കളാഴ്ച ഹാക്കത്തണിന്റെ ഗ്രാന്റ് ഫിനാലെ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി രമേഷ് പൊഖ്രിയാൽ അറിയിച്ചു വൈകിട്ട് നാലരയ്ക്ക് പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചും വിശദീകരിക്കും

മൊബൈൽ സേവന ദാതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തിൽ അഭിനന്ദിച്ചു ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പ് ടെലിഫോൺ കമ്പനികൾ സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ സംഭാവനകളെ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു

രുമ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നതിനാൽ തോട്ടപ്പള്ളി പൊഴി മുറിക്കാൻ നടപടിയെടുക്കുന്നതിന് മന്ത്രി ജി സുധാകരൻ ജലസേചന വകുപ്പ് എക്സിക്യുട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി ആലപ്പുഴ കലക്ടറേറ്റിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് അടിയന്തര ഘട്ടത്തിൽ പൊഴി മുറിക്കാൻ തീരുമാനമെടുത്തതെന്ന് മന്ത്രി പറഞ്ഞു രുമ കോഴിക്കോട് തിരുവമ്പാടിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പ്പാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രം രാവിലെ നാടിന് സമർപ്പിക്കും

പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും